കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ കല്യാണിൽ രണ്ട് പ്രധാന മെട്രോ ഇടനാഴികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി ന്ദിർവ്വഹിക്കും

പ്രധാനമന്ത്രി ഭൂവന നിർമ്മാണ പദ്ധതിയിൻ കീഴിൽ പാവപ്പെട്ടവർക്കുട്ടു ഇടത്തരക്കാർക്കും വേണ്ടിയുള്ള ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

തുടർന്ന് പൂനെയ്ക്ക് പോകുന്ന പ്രധാനമന്ത്രി പൂനെ മെട്രോ മൂന്നാംഘട്ട വികസനത്തിന് തറക്കല്ലിടും പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും മുംബൈയിൽ നടക്കുന്ന റിപ്പബ്ലിക്ക് ഉച്ചകോടിയെയും ശ്രീ

ലക്ഷ്മണിന്റെ കാർട്ടൂണുകളെ ആധാരമാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

തിത്ലി ചുഴലിക്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും ഇരുസംസ്ഥാനങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾ കണക്കിലെടുത്താണ് കൂടുതൽ തുക അനുവദിക്കാൻ തീരുമാനിച്ചത് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഉജ്ജ്വല യോജന പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുമെന്ന് ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ തീരുമാനം അറിയിച്ചു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രഥാൻ പറഞ്ഞു ഇതുവരെ എൽ

ജി കണക്ഷൻ ലഭിക്കാത്തവർക്ക് കരുതൽ നിക്ഷേപം അടയ്ക്കാതെ കണക്ഷൻ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു

രണ്ട് പുതിയ ആൾ ഇന്ത്യാ മെഡിക്കൽ സയൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി

ബീഹാറിലെ പറ്റ്നയിൽ ഗംഗാ നദിക്ക് കുറുകെയുള്ള മഹാത്മാഗാന്ധി സേതുവിന് സമാന്തരമായി പുതിയ നാലുവരി പാലം നിർമ്മിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സത്യപ്രതിജ്ഞയെ തുടർന്നുള്ള ആദ്യ മന്ത്രിസഭായോഗ ശ്രേഷ്ടം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മൂഖ്യമീന്തി

ഇന്നലെ വൈകുന്നേരമാണ് ശ്രീ ഭാഗേലിന്റെ നേതൃത്വത്തിലെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരായ ടി

മാലെദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മൊഹമ്മദ് സൊലിഹിനെ രാഷ്ട്രപതി ഭവനിൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മല്യയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട കോടതി വിധിയും അന്നുണ്ടാകുമെന്ന് പ്രത്യേക ജഡ്ജി എം

എന്നാൽ ഈ പുതിയ നിയമം നീതിനിഷേധപരമാണെന്നും അതിനാൽ അപേക്ഷ നിരസിക്കണമെന്നും ആവശ്യപ്പെട്ട് മല്യയും കോടതിയെ സമീപിച്ചിരുന്നു

കെ യിൽ അഭയംതേടിയ മല്യയെ തിരിച്ച് ഇന്ത്യയിലേക്ക് അയയ്ക്കണമെന്ന് ലണ്ടനിലെ കോടതി അടുത്തിടെ ഉത്തരവിട്ടിരുന്നു

ഇതു സംബന്ധിച്ച വിവരം പാകിസ്ഥിനിൽ നിന്ന് ലഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു

അൻസാരിയുടെ കുടുംബത്തിന് ഇത് വിച്ചിയ ആശ്വാസം പകരുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ് വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

ഇന്ത്യൻ വ്യോമസേന ഡി ആർ

ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ഡയറക്ടർ ജനറൽ ഏയ്റോനോട്ടിക്കൽ കാളിറ്റി അഷറൻസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണം നടന്നത് അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ജൈവ ഇന്ധനം ഉപയോഗിച്ചുള്ള വിമാനത്തിന്റെ പ്രദർശന പറക്കൽ നടത്താൻ വ്യോമസ്പ്രേന ഉദ്ദേശിക്കുന്നതായും പ്രസ്താവന വ്യക്തമാക്കി

സംസ്ഥാനങ്ങളു മായി കൂടിയാലോചിച്ചശേഷമാണ് പദ്ധതികൾ തിരഞ്ഞെടുക്കുന്ന തെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്രമന്ത്രി അറിയിച്ചു

കൊല്ലം നഗരവികസന മാസ്റ്റർ പ്താൻ ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അഷ്ടമുടിക്കായൽ മാലിന്യമുക്തമാക്കുന്നതും ശാസ്താംകോട്ട തടാകത്തിന്റെ സംരക്ഷണവും ഉദ്യപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു

കൊച്ചിയിൽ നടന്ന അസോസിയേഷന്റെ ഡയറക്ടർ ബോർഡു യോഗമാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ചകളിൽ കൊച്ചി മുസിരീസ് ബിനാലെയിൽ പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് സംഘാടകർ കൊച്ചിയിൽ അറിയിച്ചു